ത സംസ്ഥാന ഗവൺമെന്റിന്റെ ടെലി മെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനിയിൽ സ്പെഷ്യാലിറ്റി ഒ പി കൾ സജ്ജമാക്കിയതായി മന്ത്രി കെ

സി സി പ്രസിഡണ്ടും നിലമ്പൂരിലെ യു

എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി

പ്രകാശ് പുലർച്ചെ അന്തരിച്ചു

ഇന്നലെ വൈകീട്ട് നാല് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി ആദ്യ മൂന്ന് മണിക്കൂറിലെ കണക്കാണ് പുറത്തുവിട്ടത് കൊവിൻ പ്ലാറ്റ്ഫോം തടസ്സം കൂടാതെ പ്രവർത്തിച്ചുവെന്നും സെർവർ തകർന്നുവെന്ന മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം അറിയിച്ചു

മറ്റന്നാൾ മുതൽ ഇവർക്ക് വാക്സിനേഷൻ നൽകിത്തുടങ്ങും

പികൾ സജ്ജമാക്കിയതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു കോവിഡ് കാലത്ത് പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിൽ തന്നെ ചികിത്സ തേടാൻ കഴിയുന്ന സംവിധാനമാണ് ഇ സഞ്ജീവനി

സേവനങ്ങൾ ഇ സഞ്ജീവനിയിൽ ലഭ്യമാണ് ദര സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും ഉയർന്ന കോവിഡ് സ്ഥിരീകരണം

മറ്റുജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

രുര സംസ്ഥാനത്ത് കൊവിഡ് കേസുകൾ ക്രമാതീതമായി വർധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ദൽഹിക്ക് സമാനമായ സാഹചര്യമുണ്ടാകുമെന്ന് വിദഗ്ദ്ധ സമിതി മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ ജനിതക മാറ്റം വന്ന വൈറസിനെ കുറിച്ച് പഠിച്ച വിദഗ്ധരാണ് മുന്നറിയിപ്പ് നൽകിയത്

രുര കോവിഡ് വ്യാപനം വർധിക്കുന്ന സാഹചര്യത്തിൽ പൊലീസ് അങ്ങേയറ്റം ജാഗ്രത പുലർത്തണമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ നിർദേശം നൽകി ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും മിന്നൽ പരിശോധനകൾ നടത്താൻ അഡീഷണൽ എസ് പി മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തും കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡസ്കിൽ നിന്ന് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ

കോവിഡ് പ്രതിരോധത്തിന് നിയോഗിച്ച പൊലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനവും സ്ക്വാഡ് വിലയിരുത്തുമെന്ന് ജില്ലാ പൊലീസ് മേധാവികളുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ ലോക്നാഥ് ബെഹ്റ അറിയിച്ചു വാഹന പരിശോധനയും കർശനമാക്കും

ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കാനും ബോധവൽക്കരണത്തിനുമായി രൂപീകരിച്ച വനിതാ ബുള്ളറ്റ് പട്രോൾ സംഘങ്ങളും ഇന്നുമുതൽ നിരത്തിലുണ്ടാകും ന്യൂസ് ഡെസ്ക് ആകാശവാണി രംഭ വാക്സിന്റെയും ഓക്സിജന്റെയും പേരിൽ സി

എം സംഘടിപ്പിക്കുന്ന കേന്ദ്ര വിരുദ്ധ സമരം സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാനും ജാള്യം മറച്ചുവെക്കാനും വേണ്ടിയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡണ്ട് കുമ്മനം രാജശേഖരൻ പറഞ്ഞു കോവിഡിനെതിരെ ആസൂത്രിതവും ശാസ്ത്രീയവുമായ ക്രിയാത്മക പ്രതിരോധ നടപടികൾ കേന്ദ്രം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തിവരികയാണ് ഈ സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സമര പരിപാടിയുമായി ഇറങ്ങുന്നത് അപലപനീയമാണെന്ന് ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുമ്മനം പറഞ്ഞു രുര വയനാട് മെഡിക്കൽ കോളജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹുനില കെട്ടിടം കോവിഡ് സെക്കന്റ് ലൈൻ ചികിത്സാ കേന്ദ്രമായി ജില്ലാകലക്ടർ ഏറ്റെടുത്തു

രും കോഴിക്കോട്ടെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക തല നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കലക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദേശം നൽകി തദ്ദേശ സ്ഥാപന പ്രസിഡണ്ടുമാരുടെയും സെക്രട്ടറിമാരുടെയും ഓൺലൈൻ യോഗത്തിലാണ് നിർദേശം

ആലപ്പുഴ ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകൾ പൂർണമായും പെരുമ്പളം ചേന്നംപള്ളിപ്പുറം പഞ്ചായത്തുകളാണ് അടച്ചു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്

ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഒരു മാസത്തെ ഓണറേറിയവും സംഭാവന ചെയ്യും മെയ് ഒന്നുമുതൽ കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി വാക്സിൻ നൽകുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കും രംഭ കോവിഡിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ റഷ്യ സാധ്യമായ എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് പ്രസിഡണ്ട് വ്ലാഡിമർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു

റഷ്യ വികസിപ്പിച്ച സ്ഫുട്നിക് വി വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് തെരഞ്ഞെടുത്ത ഇന്ത്യയെ വ്ലാഡിമർ പുടിൻ അഭിനന്ദിച്ചു ഇന്ത്യയ്ക്കും റഷ്യക്കും മൂന്നാം ലോക രാജ്യങ്ങൾക്കുമായി ഇന്ത്യയിൽ സ്ഫുട്നിക് വാക്സിൻ നിർമ്മിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി

അവശ്യ സാധന വിൽപ്പനശാലകളും ആശുപത്രികളും മെഡിക്കൽ ഷോപ്പുകളും പതിവുപോലെ പ്രവർത്തിക്കും ടാക്സികൾ ഡ്രൈവർ ഉൾപ്പെടെ നാലുപേരുമായും ഓട്ടോറിക്ഷകൾ ഡ്രൈവർ ഉൾപ്പെടെ മൂന്നുപേരുമായും സർവീസ് നടത്താം ഷോപ്പിങ് മാളുകളും വ്യാപാര സമുച്ചയങ്ങളും അടഞ്ഞു കിടക്കും രംഭ പശ്ചിമ ബംഗാളിൽ എട്ടാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന്

രംഭ മലപ്പുറം ഡിസിസി പ്രസിഡന്റും നിലമ്പൂരിലെ യുഡിഎഫ് സ്ഥാനാർഥിയുമായിരുന്ന വി വി പ്രകാശ് അന്തരിച്ചു

മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൈസ്കൂൾ പഠനകാലത്ത് കെ

കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിഎന്നീ നിലകളിൽ പ്രവർത്തിച്ചു

വി പ്രകാശ് നാലു വർഷം മുമ്പാണ് മലപ്പുറം ഡി സി

പ്രകാശിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും അനുശോചനമറിയിച്ചു രും ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ചെന്നൈ സൂപ്പർ കിംഗ്സ് ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു

രും കാരുണ്യ ബെനവലന്റ് പദ്ധതിയിലെ അഴിമതിയാരോപണ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിക്കും മന്ത്രിയായിരുന്ന കെ എം മാണിക്കുമെതിരായ കേസ് റദ്ദാക്കി സി എ ജി റിപ്പോർട്ടിൽ അഴിമതി പരാമർശിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി കേസ് റദ്ദാക്കിയത് രംഭ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മന്ത്രി കെ ആർ ഗൌരിയമ്മയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു കടുത്ത പനിയെ തുടുർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗൌരിയമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

രും കാസർകോട് ജില്ലയിലെ ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘം ഇന്നലെ സ്ഥല പരിശോധന നടത്തി രുമ മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയിൽ മുണ്ടേരി അപ്പൻകാപ്പ് മുതൽ വയനാട് അരുണപ്പുഴ വരെ എലിവേറ്റഡ് ഹൈവേയ്ക്ക് നടപടി പുരോഗമിക്കുന്നു ജില്ലാ അതിർത്തിയിലെ വനഭൂമി ഏറ്റെടുക്കുന്നതിലെ തർക്കം ഒഴിവാക്കാനാണ് നടപടി